ജി ബസ് കൊച്ചി പുതുവൈ പ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മലബാർ ഇന്നവേഷൻ ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് രാവിലെ തുട ക്കമാകും

വടക്കു കിഴക്കൻ ഡൽഹിയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിവേച നങ്ങളൊന്നുമില്ലാതെ ഡൽഹി പൊലീസ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അതിനിടെ വടക്കു കിഴക്കൻ ഡൽഹിയിലെ കലാപങ്ങൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് രണ്ട് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗി ച്ചു പോഷകക്കുറവ് പരിഹരിക്കുന്ന നടപടികൾ സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തിയാവണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദേ ശിച്ചു ഇതുവഴി ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ ആവുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് ദിവസത്തെ ദേശീയ പോഷണ സമ്മേളനം തിരുവനന്തപുരം രാജീവ് ഗാന്ധി സ്സെന്റർ ഫോർ ബയോ ടെക്നോളജിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ അംഗൻവാടികളിൽ ഉൾപ്പെടെ കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പു വരു ത്താനും രുചികരമായ തരത്തിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകാനും നടപടിയെടുത്തായി ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു

മന്ത്രി വി

സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ രജത ജൂബിലിയും പാലക്കാട്ട് വൈകീട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായി രിക്കും രാജ്യത്തെ ആദ്യ വാണിജ്യ എൽ

ജി ബസ് കൊച്ചി പുതുവൈപ്പിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിലെ ചരിത്രപരമായ മാറ്റത്തിന് ഇതിലൂടെ തുടക്കം കുറിച്ചതായി മന്ത്രി പറഞ്ഞു

ജി ഉപയോഗിക്കുന്ന ബസ ടക്കം വാണിജൃ വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് പാക്കേജുകളോ ഡിസ്കൌണ്ടുകളോ നൽകുന്നകാരൃം പരിശോധിക്കും

കോഴിക്കോട് മേഖലാ ശാസ്ത്രകേന്ദ്രത്തിന്റെ മലബാർ ഇന്നവേഷൻ ഫെസ്റ്റിവൽ രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പൊതുജനങ്ങൾക്കും വിദ്യാർഥികൾക്കും നൂതന ആശയങ്ങളും കണ്ടുപിടിത്തങ്ങളും ഉൽപന്നങ്ങളും പ്രദർശിപ്പിക്കാൻ സൌകര്യമൊ രുക്കുന്ന വേദിയാണിത് ശാസ്ത്രസാങ്കേതിക സ്ഥാപനങ്ങളായ എൻ ഐ ടി ബി എസ് എൻ എൽ അടയ്ക്കാം സുഗന്ധവിള ഡയരക്ടറേറ്റ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയുടെ പവലിയനുകളും ഫെസ്റ്റിവലിലുണ്ടാകും കോഴിക്കോട് ജില്ലാ നിക്ഷേപകസംഗമം ഇന്ന് ആരംഭിക്കും രാവിലെ കലക്ട്രേറ്റ്ഹാളിൽ മന്ത്രി എ കെ ശശ്രീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്തസംരംഭകരുമായി മുഖാമുഖം പ്രോജക്ട് അവതരണം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് കാണാതായ ആറ് വയസ്സുകാരിയ്ക്കായി രണ്ടാം ദിവ സവും തെരച്ചിൽ തുടരുന്നു ഇതുവരെ കുട്ടിയേകുറിച്ച് ഒരുവിവരവും ലഭിച്ചിട്ടില്ല ഫയർഫോഴ്സും നാട്ടുകാരും പള്ളിക്കലാറിലും സമീപ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തി സംസ്ഥാനത്തെ എല്ലാ പൊലീസ് സ്റ്റേഷനിലേക്കും കുട്ടിയെക്കുറിച്ച് വിവരം കൈമാറിയിട്ടുണ്ട് പള്ളിമൺ ് ഇളവൂരിലെ പ്രദീപിന്റെയും ധന്യയുടെയും മകൾ ദേവനന്ദയെ ഇന്നലെ രാവിലെ പത്തരയോടെയാണ് വീട്ടിൽനിന്നും കാണാതായത്

എ എസ് പരീക്ഷയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പരീക്ഷ റദ്ദ് ചെയ്ത് പുതിയ പരീക്ഷ നടത്തണ മെന്ന് കെ

സി സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു ഗവൺമെന്റും പി എസ് സിയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർഥികളുടെ ഭാവി തുലാസിലാക്കിയതായി അദ്ദേഹം തിരു വനന്തപുരത്ത് പറഞ്ഞു ഇടുക്കി പൈനാവ് ഹൈറേഞ്ച് മേഖലകളിൽ ഇന്നലെ രാത്രി നേരിയ ഭൂചലനമുണ്ടായി

ആശങ്കപ്പെടാനില്ലെന്ന് കെ എസ്

ബിയും ജില്ലാ ഭരണകൂടവും അറിയിച്ചു ഭുവനേശ്വറിൽ ഖേലോ ഇന്ത്യ സർവ്വകലാശാലാ ഗെയിംസിലെ അത്ല റ്റിക് ഇനങ്ങൾ ഇന്ന് തുടങ്ങും

ഫിയാസ്റ്റോ അഖിലേന്ത്യാ ബാസ് ക്കറ്റ് ബാൾ ടൂർണമെന്റ് ഇന്ന് കോഴിക്കോട്ട് തുടങ്ങും പുരുഷ വിഭാഗത്തിൽ ഏഴ് ടീമുകളും വനിതാ വിഭാഗത്തിൽ നാല് ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും ഏഴു ദിവസത്തെ ടൂർണമെന്റിൽ ആദ്യ അഞ്ചു ദിവസം ലീഗ് റൌണ്ടും തുടർന്ന് സെമി ഫൈനൽ മത്സരങ്ങളും നടക്കും ഐ ലീഗ് ഫുട്ബാളിൽ കോഴിക്കോട്ട് നാളെ ഹോം മത്സരത്തിൽ ഗോകുലം കേരള എഫ്

വൈകീട്ട് ഏഴിന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം കാഴ്ചാ പരിമിതി നേരിടുന്നവർക്ക് സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പ റേഷൻ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്യും കണ്ണൂർ ജില്ലയിൽ നൂറുപേർക്കാണ് ഫോണുകൾ നൽകുന്നത്

ജി സർവ്വകലാശാല കലോത്സവത്തിൽ ആദ്യമായാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം പങ്കെടുക്കുന്നത് മാർച്ച് രണ്ടുവരെയാണ് കലോത്സവം വിദ്യാർഥികളുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ തയാറാക്കുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു

പാലക്കാട് വാടാനാംകുറിശ്ശി ഗവ ഹയർസെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടവും യാത്രയയപ്പും ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി രജിസ്ട്രേഷൻ വകുപ്പ് നവീകരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി ജി സുധാകരൻ കാസർകോട്ട് പറഞ്ഞു ഡിജിറ്റൽ ഇമേജ് പ്രിന്റിങ് സംവി ധാനമടക്കം ആധുനിക സങ്കേതങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ സ്ഥാപിച്ചു വരികയാണ് ആധാരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷി ക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മഞ്ചേശ്വരത്ത് സബ്ര ജിസ്ട്രാർ ഓഫീസിന്റെ പുതിയകെട്ടിടം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു കണ്ണൂർ പേരാവൂർ നിയോജക മണ്ഡ്ലത്തിലെ നിർമ്മാണം പൂർത്തിയാ ക്കിയ മൂന്നുപാലങ്ങൾ മന്ത്രി ജി സുധാകരൻ ഇന്ന് തുറന്ന് കൊടുക്കും കച്ചേരിക്കടവ് ചുങ്കക്കുന്ന് തൊണ്ടിയിൽ പാലങ്ങളാണ് നാടിന് സമർപ്പിക്കുന്നത് ഖസാക്കിന്റെ ഇതിഹാസം സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി പാലക്കാട് തസ്രാക്കിൽ സ്ഥാപിച്ച സ്മാരക കവാടവും ഫോട്ടോ ഗൃാലറിയും മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഖസാക്ക് ഫോട്ടോഗ്രഫി മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനവും വിതരണം ചെയ്തു

ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായ കണ്ണൂരിലെത്തുന്ന കെ സുരേന്ദ്രന് ഇന്ന് സ്വീകരണം നൽകും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യാമ്പലത്തെത്തുന്ന അദ്ദേഹം കെ ജി മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പ്രവർത്തക കൺവെൻഷനിലും സുരേന്ദ്രൻ പങ്കെടു ക്കും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ഇതേ നിലയിൽ തന്നെ മുന്നോട്ടു പോകുമെന്ന് പാർട്ടി നേതാവ് അനൂപ് ജേക്കബ് കോഴിക്കോട് പറഞ്ഞു നിലവിൽ ലയന ചർച്ചകളൊന്നും നടന്നിട്ടില്ല പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഭാരവാഹി യോഗം മാർച്ച് ആറിന് തിരുവനന്തപുരത്ത് ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു

പ്രഭാവർമ്മയുടെ ശ്യാമമാധവം കവിതാസമാഹാരത്തിന് പൂന്താനം പുരസ് കാരം നൽകുന്നതിൽ നിന്ന് ഗുരുവായൂർ ദേവസ്ഥം ബോർഡ് പിന്മാറണമെന്ന് കോഴിക്കോട്ട് സനാതന് ധർമ്മപരിഷത്ത് ആവശ്യപ്പെട്ടു യോഗത്തിൽ കൊളത്തൂർ അദ്ദൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അധൃക്ഷനായിരുന്നു മുത്തലാഖ് ചൊല്ലി വിവാഹ ബന്ധം വേർപ്പെടുത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് പന്നിയങ്കര സ്വദേശിനിയുടെ പരാതിയിൽ പൊലീസ് കേസെടുത്തു മഞ്ചേരി കൊല്ലംപ്പറമ്പ് വീട്ടിൽ കെ പി ഷംറീലിനെതിരെയാണ് മുത്തലാഖ് നിരോധന നിയമപ്രകാരം കേസെടുത്തത്

വേനൽ കനത്തതോടെ കർണാടക തമിഴ്നാട് വനമേഖലകളിൽ നിന്ന് വന്യ ജീവികൾ കൂട്ട ത്തോടെ വരുന്നത് കൊണ്ടും കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ടുമാണ് നിരോധനം

ഇത്തരം കേസുകളിൽ സമഗ്രാന്വേഷണം നടത്താൻ പൊലീസിന് നിർദേശം നൽകിയതായി കമ്മീഷൻ അധൃക്ഷ ചിന്താജെറോ മലപ്പുറത്ത് പറഞ്ഞു ജില്ലാ തല അദാലത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ ഇന്നും നാളെയും നടത്താനിരുന്ന ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം മാറ്റി